രാജ്യസഭയിൽ സമർപ്പിച്ചു

പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് സമാപിക്കും

വാദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് ഇന്നും ചോദ്യം ചെയ്യുന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

ശബരിമലയിൽ കുംഭമാസ പൂജകൾക്ക് തുടക്കമായി

ഇന്ന് മ്യാൻമറിനെ നേരിടും

കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണനാണ് റിപ്പോർട്ട് സഭയിൽ സമർപ്പിച്ചത് വിവിധ വിഷയങ്ങളിൽ ഉണ്ടായ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും നേരത്തെ നിർത്തിവെച്ചിരുന്നു

മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവിനെ ലക്നൌ വിമാനത്താവളത്തിൽ തടഞ്ഞതായ സംഭവം സമാജ്വാദി പാർട്ടി ബി എസ്

അംഗങ്ങൾ സഭയിൽ ഉന്നയിച്ചു രാജ്യസഭാ അധ്യക്ഷൻ എം വെങ്കയ്യ നായിഡു വിഷയം അവതരിപ്പിക്കാൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നിട്ടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു രാജ്യസഭാ മുൻ അംഗം ക്ലൈത്രന്യ പ്രസാദ് മാജി ക്ക് സഭ അന്തിമോപചാരം അർപ്പിച്ചു ലോക്സഭയിലും പ്രതിപക്ഷ ബഹളം സഭാ നടപടികൾ തടസ്സപ്പെടുത്തി

ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് വാദ്രയെ ചോദൃം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ മൂന്ന് തവണ വാദ്രയെ ചോദ്യം ചെയ്തിരുന്നു

ന്യൂഡൽഹി തൽക്കത്തോറ സ്റ്റേഡിയത്തിലാണ് സമ്മേളനം

റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നൂതന ആശയങ്ങളും സംരംഭങ്ങളും യോഗം ചർച്ച ചെയ്യും പുതുതലമുറ എന്നതാണ് പ്രമേയം സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രദർശനം പ്രധാനമന്ത്രി സന്ദർശിക്കും

ജെ

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അദ്ദേഹത്തെ അനുഗമിക്കും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

വാർത്താ വിതരണ മേഖലയിലെ മാറ്റങ്ങളെ കുറിച്ചും നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും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

കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

റേഡിയോയെ അതിശക്തമായ ഉപകരണം എന്ന് വിശ്രേഷിപ്പിച്ച യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇന്നത്തെ സൈബർ ലോകത്തും റേഡിയോയ്ക്ക് മറ്റേതൊരു മാധ്യമത്തെക്കാളും ഉയർന്ന സ്ഥാനമാണുള്ളതെന്ന് അഭിപ്രായപ്പെട്ടു മാനവസമൂഹത്തിൽ ചർച്ചയും സഹനവും സമാധാനവും പ്രചരിപ്പിക്കാൻ റേഡിയോ നൽകുന്ന സംഭാവനയെ തിരിച്ചറിയാൻ ഈ ദിനം ഉപകരിക്കട്ടെ എന്ന് അദ്ദേഹം തന്റെ സന്ദേശത്തിൽ എടുത്തുപറഞ്ഞു ന്യൂസ്ഡെസ്ക് ആകാശവാണി

എന്നാൽ ചിലർ ഇതിനെ ഇപ്പോഴും എതിർക്കുകയാണെന്ന് കമ്മീഷണർ പറഞ്ഞു ആന്ധ്രാപ്രദേശിലെ ലോക്സഭ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം അമരാവതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം കാട്ടുന്നതും കേടാവുന്നതും തമ്മിൽ വൃത്യാസമുണ്ടെന്നും കൃത്രിമം കാട്ടിയ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും കമ്മിഷണർ പറഞ്ഞു വി വി പാറ്റ് സ്തിപ്പുകൾ എണ്ണണമെന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് വിഷയത്തിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും നാഷണൽ സാംപിൾ സർവെ ഓർശുനൈസേഷനും അവരുടെ റിപ്പോർട്ടുകൾ ഉടൻ സമർപ്പിക്കുമെന്ന് അദ്ദേഹ് പറഞ്ഞു

സദാശിവം നിർവ്വഹിക്കും

ആയുർവേദം യോഗ പ്രകൃതിചികിത്സ യുനാനി സിദ്ധ ഹോമിയോപ്പതി എന്നിവയുടെ വിവിധ സ്പെഷ്യാലിറ്റി ചികിത്സാരീതികൾ ലോകത്തിന് പരി ചയപ്പെടുത്താനുംശക്തിപ്പെടുത്താനുമാണ് ആയുഷ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ശാസ്ത്രസാങ്കേതിക വ്യാവസായികമേഖലയിലെ പുതിയ കണ്ടെത്തലുകൾ ആയുഷ്മേഖലയിൽ സ്വാംശികരിക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യും

ഇന്ന് പുലർച്ചെ മഹാഗണപതിഹോമത്തോടെ പൂജകൾക്ക് തുടക്കമായി

ജെ പി ജില്ലാകേന്ദ്രങ്ങളിൽ സത്യഗ്രഹം സംഘടിപ്പിച്ചിട്ടുണ്ട്

ബഡ്ഗാം ജില്ലയിലെ നൌഗാം മേഖലയിൽ പുലർച്ചെയാണ് ഏറ്റുമുട്ടലുണ്ടായത് ഭീകരരുടെ സാന്നിധ്യം മനസ്സിലാക്കിയ സുരക്ഷാസേന മേഖലയിൽ തെരച്ചിൽ നട്ടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് തെരച്ചിൽ തുടരുകയാണ് ഇന്ത്യൻ ഭാഗത്ത് ആൾനാശമുണ്ടായില്ല

കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ ദുബായിൽ ചേർന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിലാണ് തൊഴിൽമേഖലയിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ട് അവതരിപ്പിച്ചത് സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റവും വികസന മേഖലകളുടെ ആവശ്യകതയും തൊഴിലവസര സൃഷ്ടിക്ക് ഗുണകരമായ പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് ഉച്ചകോടി വ്യക്തമാക്കി

പുതിയ ഡിജിറ്റൽ അധിഷ്ഠിത സമ്പദ്ഘടനയോട് ഇനിയും പൊരുത്തപ്പെട്ടിട്ടില്ലാത്ത ജനവിഭാഗത്തെ സംരക്ഷിക്കാൻ നടപടി വേണം സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുതകുന്ന പ്രവർത്തന വേദിപ്പ് ആവിഷ്കരിച്ച് സാങ്കേതിക വിദ്യാ വിപ്തവത്തെ സാർവത്രികമാക്ക്ണമെന്ന് സാമ്പത്തിക വികസന സമിതി സെക്രട്ടറി ജനറൽ ജോസ് ഏഞ്ചൽ ഗുറിയ നിർദ്ദേശിച്ചു

ഡിജിറ്റൽ സാക്ഷരയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ നടപടി വേണമെന്നും ഗുറിയ ആവശ്യപ്പെട്ടു

റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലെവോർവാണ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത്

വി യിലും ഡി ടി